ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

ദേശീയ പോഷകാഹാര ദൌതൃത്തിനു കീഴിൽ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്ക്കരിച്ച സമ്പുഷ്ട കേരളം പദ്ധതിയുടെ തിരുവനന്തപുരത്തു നടന്ന സംസ്ഥാനതല ഉദ്ഘാടന ച്ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്ര മന്ത്രി പോഷകാഹാരക്കുറവെന്ന ഭീഷണി നേരിടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ യോജിച്ച പ്രവർത്തനത്തലൂടെ സാധ്യമാകുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു

അടുത്ത മാസം നടക്കുന്ന പോഷൺ മാസാചരണ ത്തിനും ശുചിത്വമായി ബന്ധപ്പെട്ട പരിപാടികളിലും കേരളം സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൺസ്റ്റോപ്പ് ക്രൈസിസ് സെന്റ റുകൾ ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ഫണ്ട് അനുവദിച്ചി ട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവയെല്ലാം പ്രവർത്തനക്ഷമമാക്ക ണമെന്നും സ്മൃതി ഇറാനി നിർദേശിച്ചു സമ്പുഷ്ട കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചട ങ്ങിൽ മുഖൃമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിച്ചു നവജാത ശിശു ക്കളുടെ ഭാരക്കുറവിന് കാരണം ഗർഭിണികളുടെ പോഷകാഹാരക്കു റവാണെന്നത് ഗൌരവമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടി വർക്കർമാർക്കും സൂപ്പർ വൈസർമാർക്കും സ്മാർട്ട്ഫോൺ വിതരണവും ഐസിഡി എസ് സിഎഎസ് സോഫ്റ്റ്വെയർ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവ ഹിച്ചു കഴിഞ്ഞ വർഷം കാസർകോട് മലപ്പുറം കണ്ണൂർ വയനാട് എന്നീ നാലു ജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ച സമ്പുഷ്ട കേരളം പദ്ധതി യാണ് സംസ്ഥാന വ്യാപകമാക്കുന്നത് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വനിതാ ശിശുവികസന പദ്ധതികൾ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വിലയിരുത്തി

കേരളം നടപ്പാക്കുന്ന സ്മാർട്ട് അംഗൻവാടി പദ്ധതിയിൽ കേന്ദ്രമന്ത്രി തൃപ്തി അറിയിച്ചു ഡിജിറ്റൽ ഇന്ത്യ റിന്യൂവബിൾ എനർജി എന്നിവ സ്മാർട്ട് അംഗൻവാടി പദ്ധതിയുമായി സംയോജിപ്പിക്കാവുന്നതാണെന്ന് മന്ത്രി നിർദ്ദേശിച്ചു വൺസ്റ്റോപ്പ് സെൻ്റർ ആറ് ജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ച തായും മറ്റു ജില്ലകളിൽ ഈ മാസം ആരംഭിക്കുമെന്നും മന്ത്രി കെ

കേരളത്തിലെ ആദിവാസി സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്ഥിതി യോഗം ചർച്ച ചെയ്തു സ്വകാരൃ ചാനൽ സംഘടിപ്പിക്കുന്ന് ന്യൂസ് കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കൊച്ചിയിൽ എത്തി ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പരി പാടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിങ്ങ് വഴി നിർവ്വഹിക്കും തുടർന്ന് കേന്ദ്ര മന്ത്രി ജാവ്ദേക്കർ ഗവൺമെന്റും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കും ഐഎൻഎക്സ് മീഡിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻകൂർ ജാമൃം തേടി മുൻകേന്ദ്രമന്ത്രി പി ചിദംബരം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി അടുത്ത മാസം അഞ്ചിന് വിധി പറയാൻ മാറ്റി അതുവരെ എൻഫോഴ്സമെന്റ് ഡയറക്ടറേറ്റ് ചിദംബരത്തെ അറസ്റ്റ് ചെയ്യരുതെന്ന് ജസ്റ്റിസുമാരായ ആർ ഭാനുമതി എ

ബോപ്പണ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി അഴിമതിക്കേസിൽ സിബിഐ കസ്റ്റഡിയിൽ വിട്ട വിചാരണ കോടതി ഉത്തരവിനെതിരെ ചിദംബരം സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച്ച പരിഗണിക്കുമെന്ന് കോടതി വൃക്തമാക്കി

കോഴിക്കോട് മുക്കത്ത് എംപി ഓഫീസ് ഉദ്ഘാടനം നിർവ ഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാടിന്റെ രാത്രിയാത്രാ പ്രശ്നം പരിഹരിക്കാനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വികസനത്തിനും കൂട്ടായി പരിശ്രമിക്കുമെന്നും രാഷ്ട്രീയത്തിന് ഉപ രിയായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും മുമ്പിൽ തന്റെ എംപി ഓഫീ സിന്റെ വാതിലുകൾ തുറന്നുകിടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രളയദുരിതാശ്വാസ സഹായം അർഹരിൽ എത്തിക്കാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെല്ലുത്തുമെന്നും പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാണ് യുവാക്കൾ നിർവഹിച്ചതെന്നും രാഹുൽ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ പങ്കുച്ചേർന്ന മത്സ്യത്തൊ ഴിലാളികളേയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരേയും ചടങ്ങിൽ ആദരിച്ചു

വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏറ നാട് വണ്ടൂർ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളുമായി രാഹുൽ ഗാന്ധി സംവദിച്ചു സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പ്രവർത്ത കരോട് ആവശ്യപ്പെട്ടു പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരു മാനിക്കുന്നതിന് എൻഡിഎ യോഗം ഇന്ന് ചേരും അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തെച്ചൊല്ലി കേരളാ കോൺഗ്രസ് എമ്മിൽ നിലനിൽക്കുന്നു തർക്കം പരിഹരിക്കുന്നതിന് യുഡിഎഫ് നേതൃ യോഗം നാളെ കോട്ടയത്ത് ചേരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി പി

കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിനു മുൻപ് കേരളാ കോൺഗ്രസ് എം നേതാക്കളുമായി യുഡിഎഫ് നേതാക്കൾ ഉഭയകക്ഷി ചർച്ച നട ത്തും അതേസമയം രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാ പിക്കുമെന്ന് ജോസ്

എൽഡിഎഫ് സ്ഥാനാർത്ഥി നാളെ നാമനിർദേശ പത്രിക നൽകും പാളത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കൊങ്കൺ പാത വഴി തട സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഇന്ന് വൈകീട്ടോടെ പുനസ്ഥാപിച്ചേക്കും

ഇന്ന് മുതൽ തിരുവനന്തപുരം ലോകമാനൃ തിലക് നേത്രാവതി എക്സ്പ്രസ് സാധാരണ റൂട്ടിൽ സർവ്വീസ് നടത്തുമെന്ന് റെയിൽവെ അറിയിച്ചു അതേസമയം ഇന്നത്തെ എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട് എറണാകുളത്തിനും മംഗലൂരുവിനുമിടയിൽ ഇന്ന് പ്രത്യേക പാസ ഞ്ചർ സർവ്വീസ് നടത്തും

സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് കൂടി കനത്ത മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ ക്യേന്ദ്രം മുന്നറിയിപ്പ് നൽകി നാളെയും മറ്റന്നാളും മഴയുടെ ശ്ക്തി കുറയും തിങ്കളാഴ്ച്ച കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത യുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു

ചില കുടുംബങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവശേഷിച്ചതെന്നും ഇവർക്ക് മരണാനന്തര സഹായതുക കൈമാറുന്നതിലെ നിയമപ്രശ്നം പരി ഹരിക്കുന്നതിന് മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽ രത്ന പാരാലിംപിക്സ് വെള്ളിമെഡൽ ജേതാവ് ദീപ മാലിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി കായിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ ഹോക്കി താരവും മല യാളിയുമായ മാനുവൽ ഫ്രെഡറിക്കിന് ധ്യാൻചന്ദ് പുരസ്കാരവും ബാഡ്മിന്റൺ പരിശീലകൻ യു വിമൽകുമാറിന് ദ്രോണാചാര്യ പുര സ്കാരവും സമ്മാനിച്ചു ലക്നൌവിൽ ദേശീയ അത്ലറ്റിക് മീറ്റ് റിലേ മത്സരത്തിൽ പങ്കെ ടുക്കേണ്ടതിനാൽ അർജ്ജുന അവാർഡ് ജേതാവും മലയാളിയുമായ വൈ മുഹമ്മദ് അനസിന് രാഷ്ട്രപതിയിൽ നിന്ന് അർജ്ജുന അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല

മൂന്നാം ദിവസമായ ഇന്നലെ രണ്ട് സ്വർണം ഉൾപ്പെട ആറ് മെഡലു കൾ കേരളം സ്വന്തമാക്കി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ രണ്ടാമത്തേയും അവ സാനത്തേയും മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ്ഇൻഡീസിനെ നേരി ടും രാത്രി എട്ടിന് കിങ്സറ്റണിലെ സബീനാ പാർക്കിലാണ് മത്സരം

ഈ മത്സരം ജയിച്ചാൽ ടെസ്റ്റിൽ ഇന്ത്യയെ കൂടുതൽ വിജയങ്ങ ളിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് വിരാട് കോഹ്ലി സ്വന്ത മാക്കും

മുൻ നായകൻ മഹേന്ദ്രസിങ്ങ് ധോണിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡൃ തിരിച്ചെ ത്തി

കായിക മുന്നേറ്റവും പരിശീലനവും ഗ്രാമതലങ്ങളിലേക്ക് വ്യാപി പ്പിക്കാനും ഇതിനായി ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണം ഉറപ്പു വരുത്താനും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പൊതുയോഗം തീരുമാനിച്ചു

കുടുംബ ബജറ്റിൽ അമിത ഭാരമുണ്ടാക്കാതെ ഓണം ആഘോ ഷിക്കാൻ സൌകരൃമാണ് ഗവൺമെന്റ് ഒരുക്കുന്നതെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സപ്ലൈകോ ഓണം ജില്ലാ ഫെയറു കളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

സർഫേസി നിയമത്തിന്റെ കാര്യത്തിൽ അടിയന്തരമായി സ്വീക രിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിച്ചു വരികയാണെന്ന് ഇതു സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച നിയമസഭാ സമിതി ചെയർമാൻ എസ് ശർമ്മ കണ്ണൂരിൽ പറഞ്ഞു അടുത്തയാഴ്ച്ച അറ്റോർണി ജനറ ലുമായി ഇതിന്റെ നിമയമവശങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുമെന്നും താമസിയാതെ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറി യിച്ചു കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട്ട് ജില്ലകൾക്കായി കണ്ണൂരിൽ നടത്തിയ തെളിവെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം കാസർകോട് സഫിയ വധക്കേസിൽ ഒന്നാം പ്രതിയും ഗോവ യിൽ കാരാറുകാരനുമായ ഹംസക്ക് വിചാരണ കോടതി വിധിച്ച വധ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തം തടവായി കുറച്ചു കേസിൽ മൂന്നാം പ്രതിയും ഹംസയുടെ ഭാര്യയുമായ മൈമൂന നാലാം പ്രതി അബ്ദുള്ള എന്നിവരുടെ മൂന്ന് വർഷം തടവ് ശിക്ഷ കോടതി റദ്ദാ ക്കി

സഹകരണ ആശുപത്രികളെ ഗവൺമെന്റിന്റെ നികുതികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ അഡി മിനിസ്ട്രേറ്റീവ് കമ്മറ്റി കൺവീനർ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ ആവശ്യപ്പെട്ടു സ്ഥകാര്യ ആശുപത്രികളുടെ ചൂഷണം തട യാൻ കൂടുതൽ സഹകരണ സംഘങ്ങൾ ആരോഗൃ രംഗത്തേക്ക് കടന്നുവരണമെന്നും ഇതിനായി ബജറ്റിൽ തുക വകയിരുത്തണ മെന്നും അദ്ദേഹം പറഞ്ഞു

എറണാകുളം ജില്ലയിലെ വിവിധ താലൂക്കുകളിലെ ഉരുൾപ്പൊ ട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ പഠനം നടത്തിയ വിദഗ്ധ സംഘം ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി കോതമംഗലം കണ യന്നൂർ മൂപ്പാറ്റുപുഴ ആലുവ കുന്നത്തുനാട് താലൂക്കുകളിലാണ് സംഘം പഠനം നടത്തിയത് വികലാംഗ പെൻഷൻ തുക വർദ്ധിപ്പിക്കാത്തിലും കൂടിശ്ശിക തീർത്ത് നൽകാത്തതിലും കേരളാ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് പാലക്കാട് ജില്ലാ കമ്മറ്റി പ്രതിഷേധിച്ചു